കെ ശ്രശീന്ദ്രൻ വനാവകാശ നിയമം കർശനമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുദർശൻ ഭഗത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യുവജന പങ്കാളിത്തം അനിവാ ര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ കേരളം മുന്നേറ്റം തുടങ്ങി

കണ്ണൂർ കല്ല്യാട്ട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവവേ ഷണ കേന്ദ്രത്തിന് ആവശ്യമായ മുഴുവൻ ഭൂമിയും ജൂൺ മാസത്തോടെ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ

ശൈലജ അറിയിച്ചു

മന്ത്രി ഇ പി ജയരാജൻ ചെയർമാനും ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു

ദേശീയ റോഡ് സുരക്ഷാവാരാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗതാ ഗത നിയമങ്ങൾ ലംഘിക്കുന്നത് യുവാക്കൾക്കിടയിൽ പുതിയ ശൈലിയായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി നല്ല റോഡുകളിലാണ് ഇപ്പോൾ കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഗതാഗത നിയമങ്ങൾ പാലി ക്കാത്തതും അശ്രദ്ധയും അമിതവേഗവുമാണ് ഇതിന് കാരണമെന്നും മന്ത്രി വിശദീകരിച്ചു വനാവകാശ നിയമം കൃത്യമായി നടപ്പാക്കു മെന്ന് കേന്ദ്ര സഹമന്ത്രി സുദർശൻ ഭഗത് കോഴിക്കോട്ട് പറഞ്ഞു വനവാസികളെ മുഖ്യ ധാരയിലെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടത്തിവരി കയാണെന്നും അദ്ദേഹം അറിയിച്ചു കോഴിക്കോട്ടെ ഭാസ്കർ റാവു ജന്മശ താബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയസെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വനവാ സികൾ പരമ്പരാഗതമായി കൈമാറിവരുന്ന അറിവുകൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു ് ് നാടിന്റെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ യുവജനങ്ങ ളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം

മന്ത്രി ഡോക്ടർ കെ

ജലീൽ അധ്യക്ഷനായിരുന്നു

സംസ്ഥാന വികസനത്തിന് യോജിച്ച ബജറ്റാണ് ഇത്തവണത്തേത് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യു മ്പോൾ വികസനം നേടിയതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ യിലാണ് കേരളമെന്നും അദ്ദേഹം അറിയിച്ചു കൊച്ചിയിൽ ഇ എം എസ് പഠനകേന്ദ്രം സംഘടിപ്പിച്ച ബജറ്റ് പ്രഭാഷണത്തിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ് നവോത്ഥാനമെന്നത് പുതിയ വാക്കല്ലെന്നും ഋഷിമാരും സാമൂ ഹൃപരിഷ്കർത്താക്കളും നവോത്ഥാനം നടപ്പാക്കിയ നാട്ടാണ് കേരളമെന്നും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു പത്തനം തിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹ്ം സാമൂഹിക പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു നവോത്ഥാനമെന്നും ഇന്ന് ചിലർ നവോത്ഥാ നത്തിന്റെ പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും കുമ്മനം അഭി പ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സംസ്ഥാന സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മുന്നണി വിപുലീകര ണത്തിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ പുതിയ ഘട കക്ഷികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാവും സീറ്റുവിഭജന തീരു മാനം ഘടകക്ഷികൾ തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ചർച്ച നടന്നേക്കും

രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന കൌൺസിലും തിരുവനന്തപുരത്ത് എം എൻ സ്മാരകത്തിൽ ചേരുമെന്ന് സംസ്ഥാന സെക്ര ട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടു ത്തേണ്ട വിഷയങ്ങൾ സമാഹരിക്കാനാണ് വിജയരഥയാത്ര സംഘടിപ്പിക്കു ന്നത്

മറ്റ് ദ്ദ രണ്ട് പ്രചാരണ വാഹനങ്ങൾ ഇന്ന് തൃശൂരുനിന്നും കാസർകോടുനിന്നും യാത്ര തിരിക്കും തൃശൂരിൽ പി

കൃഷ്ണദാസും കാസർകോട്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയും യാത്ര ഉദ്ഘാടനം ചെയ്യും

എസ് എൻ ഡി പി യോഗത്തിന് പ്രത്യേക രാഷ്ട്രീയമില്ലാത്തതു കൊണ്ടാണ് സംഘടനയുടെ നേതാക്കൾ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ച തെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാ പ്പള്ളി നടേശൻ അറിയിച്ചു എസ് എൻ ഡി പി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ടെന്നും നേതാക്കൾ മത്സരിച്ചാൽ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ വ്യക്തമാക്കി

രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു മുഖ്യാതിഥിയായിരിക്കും

ഇന്ന് ഏഴ് ഇനങ്ങളിലാണ് ഫൈനൽ

ചതുർദ്ദിന ക്രിക്കറ്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു

ഇന്ത്യയുടെ പ്രിയങ്ക് പഞ്ചലാണ് മാൻ ഓഫ് ദ മാച്ച്

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പൂനെയിൽ എ ടി കെ പൂനെ മത്സരം സമനിലയിൽ ഇരുടീമുകളും രണ്ട് ഗോൾ വീതം നേടി

കൊച്ചിയിൽ പ്രോവോളി ലീഗിൽ കാലിക്കറ്റ് ഹീറോസ് രണ്ടിനെ തിരെ മൂന്ന് സെറ്റുകൾക്ക് ബ്ലാക് ഹോക്സ് ഹൈദരാബാദിനെ തോൽപി ച്ചു ഇതോടെ കാലിക്കറ്റ് പ്ലേ ഓഫിൽ കടന്നു

കാഴ്ചാ പരിമിതരുടെ പ്രഥമ നാഗേഷ്ട്രോഫി ബ്ലൈന്റ് ക്രിക്കറ്റ് ടൂർണ്ണമെന്റിൽ ഒഡിഷ ജേതാക്കളായി

പോയിന്റുമായി പയ്യന്നൂർ കോളേജ് ഓവറോൾ കിരീടം നേടി

കണ്ണൂർ എസ് എൻ കോളേജ് രണ്ടാം സ്ഥാനവും ആതിഥേയരായ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി കണ്ണൂർ എസ് എൻ കോളേ ജിലെ അതുൽകൃഷ്ണയും പയ്യന്നൂർ കോളേജിലെ അഷിതമനോജുമാണ് കലോത്സവ പ്രതിഭകൾ സമാപന സമ്മേളനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാ ടനം ചെയ്തു

മറ്റന്നാൾ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും തുടങ്ങും

കണ്ണൂർ വാരം ചതുരക്കിണറിനു സമീപം ഓട്ടോ ടാക്സിയും ബൈക്കും കൂട്ടിയിടിച്ച് മൂന്നുപേർ മരിച്ചു

ഇന്നലെ അർദ്ധരാത്രിയോടെയാ യിരുന്നു അപകടം

കേരള രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ ആദ്യകാല ക്യാപ്റ്റൻ കണ്ണൂർ പാറക്കണ്ടിയിലെ അശോക് ശേഖർ നിര്യാതനായി

സംസ്കൃത പണ്ഡിതനും ഗ്രന്ഥകാരനും ഗ്രവേഷകനുമായ ഡോക്ടർ ചേക്രക്കൽ ഇല്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി നിര്യാതനായി

സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടത്തും

കോഴിക്കോട് സി ഡബ്നിയു ആർ ഡി എം മുൻ മേധാവി ഡോക്ടർ പി ബസാഖ് നിര്യാതനായി

രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് അവതരണം

റേഷൻ വിതരണത്തിലെ പരാതികൾ പരിഹരിക്കാനാണ് പുതിയ മാതൃകയിൽ റേഷൻ ബിൽ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പി

റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇ പോസ് മെഷീനിൽ നിന്ന് ലഭിക്കുന്ന ബില്ലിൽ വാങ്ങിയ സാധനങ്ങളും വാങ്ങാൻ ശേഷിക്കുന്ന സാധനങ്ങളും പ്രത്യേകം രേഖപ്പെടുത്തും പരാതി കൾ അറിയിക്കാൻ താലൂക്ക് സപ്പ്ലൈ ഓഫീസറുടെയും റേഷനിംഗ് ഇൻസ്പെക്ടറുടെയും മൊബൈൽ നമ്പറുകൾ ഉണ്ടാകുമെന്നും മന്ത്രി അറി യിച്ചു